ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത് മിർസിയോയെവുമായുള്ള വെർചൽ ഉച്ചകോടി യിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരു രാജൃങ്ങളും ഭീകരത എന്ന വെല്ലുവിളി നേരിടുന്നവരാണ് അഫ്ഗാനിസ്ഥാനിലെ സമാധാന പുനസ്ഥാപനത്തിനും ഇന്ത്യ യോജിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ നരേന്ദ്ര മോദി പറഞ്ഞു ഉസ്ബക്കിസ്ഥാനുമായി നിരവധി വർഷങ്ങളായി തുടരുന്ന ബന്ധം കൂടുതൽ ശക്തമാക്കും കൃഷി സാങ്കേതികവിദൃ ഐ ടി തുടങ്ങി മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഇരുരാജ്യങ്ങൾക്കും നേട്ടമാകുമെന്നും പ്രധാനിമന്ത്രി പറഞ്ഞു വെർച്ചൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാര്ണാപത്രങ്ങളും ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നു

കായികാഭ്യാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ജനങ്ങളിൽ ആരോഗ്യകരമായ ശീലം വളർത്താനുള്ള ഇന്തൃയുടെ സംരംഭത്തെ അഭിനന്ദിക്കുന്നതായി ലോകാരോഗൃ സംഘടനാ ട്വീറ്റ് ചെയ്തു ഫിറ്റ് ഇന്ത്യാ മുന്നേറ്റത്തിന്റെ ഭാഗമായി കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു തുടക്കമിട്ട പ്രചാരണ പരിപാടിയുമായി സിനിമാതാരങ്ങൾ കായികപ്രതിഭകൾ എഴുത്തുകാർ ഡോക്ടർമാർ വിശിഷ്ട വൃക്തികൾ തുടങ്ങി ഒട്ടനവധി പേരാണ് സഹകരിക്കുന്നത്

കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൊപ്ര സംഭരിക്കാനും കേന്ദ്രസർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്

ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡിഗഡ് ജമ്മു കശ്മീർ കേരളം ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിലും സംഭരണം പുരോഗമിക്കുകയാണ്

അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് പ്രിർച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി

ഫിക്കിയുടെ വിർച്ചൽ വാർഷിക എക്സ്പോയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

പ്രചോദിതമായ ഇന്തൃ എന്നതാണ് സമ്മേളനത്തിനന്റെ ഈ വർഷത്തെ പ്രമേയം

ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു ഭരണഘടന യുടെ അന്തസത്ത ഉൾക്കൊണ്ട രാഷ്ട്രതന്തജ്ഞനായിരുന്നു പ്രണബ് ദായെന്ന് സ്പീക്കർ ട്വിറ്ററിൽ കുറിച്ചു

മൂന്നൂരല്ക്ഷത്തിലേറെ പേർ നിലവിൽ ചികിത്സയിലുണ്ട്

വാക്സിൻ നൽകേണ്ടവരുടെ പട്ടികയും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് വാക്സിൻ ഓരോ കേന്ദ്രങ്ങളിലെത്തിക്കാനുള്ള വാഹനസൌകര്യവും ഏർപ്പെടുത്തിക്കഴിഞ്ഞു

ഏതാനും ദിവസ്ഗ്ദങ്ങൾക്കകം അതോറിറ്റി വാക്സിന് ഔദ്യോഗിക അംഗീകാരം ന്ൽകുമെന്നും അടുത്തയാഴ്ചയോടെ ആരോഗ്യപ്രവർത്തകർക്കും വിയ്ക്കും വാക്സിൻ നൽകാനാകും എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്

മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്

മൊയ്തീൻ തെരഞ്ഞെടുപ്പ് സമയത്തിന് മുൻപ് വോട്ടു ചെയ്തെന്ന വിവാദം അടിസ്ഥാനമില്ലാത്തതാണെന്ന് തൃശൂർ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് മന്ത്രി വോട്ട് ചെയ്ത സമയം പ്രിസൈഡിങ് ഓഫിസറുടെ വാച്ചിൽ ഏഴു മണിയായിരുന്നുവെന്നും കലക്ടർ തിരഞ്ഞെടുപ്പ് കമ്മിഷന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു

ടി

തിങ്കളാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും സമാന ഇടപാടായ എൻ

പർവ്വതങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ ദിനം വിരൽ ചൂണ്ടുന്നത്

രാജ്യത്തിന്റെ സുസ്ഥിര വികസന തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ പർവത പരിസ്ഥിതി വൃവസ്ഥയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ആശംസാസന്ദേശത്തിൽ പറഞ്ഞു

നദിയിൽ ബോട്ട് യാത്ര നടത്തുമ്പോൾ നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നതിനും നിരോധനമേർപ്പെടുത്തി